മോചിപ്പിച്ചതായി യു എൻ റിപ്പോർട്ട്

വനിതാവിഭാഗത്തിൽ സെറീന വിലൃംസ് സിമോണ ഹാലപ്പിനെ നേരിടും

ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും നിലവിലുള്ള നാല് മന്ത്രിമാരെ മാറ്റി പകരം മറ്റ് നാല് പേരെ ഉൾപ്പെടുത്തിയാണ് ഗോവ മന്ത്രിസഭ പുനസംഘടിപ്പിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം ഗോവ മുഖ്യമന്ത്രയാണ് ഇക്കാര്യം അറിയിച്ചത്

ജെ പി സഖ്യകക്ഷിയായിരുന്ന ഗോവാ ഫോർവേർഡ് പാർട്ടിയിലെ മൂന്ന് പേരും സ്വാതന്ത്ര എം

ജെ പിയിലെത്തിയ മൂന്ന് എം

എ മാരും ഒരു ബി ജെ പി എം എൽ എയുമായിരിക്കും പുതിയ മന്ത്രിമാർ

എൽ എമാർ ബി ജെ

ജെ

പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രിയായ ശേഷം ഗോവ മന്ത്രിസഭയിൽ നടക്കുന്ന രണ്ടാമത്തെ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കുന്നത്

അമേരിക്കൻ വ്യാപാര പ്രതിനിധി ക്രിസ്റ്റഫർ വിൽസണിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും വാണിജ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി സജ്ഞയ് ചദ്ദയുടെ നേതൃത്വ ത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇന്നലെ ന്യൂഡൽഹിയിൽ നട ത്തിയ ഉഭയ കക്ഷി ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച ധാരണയിലെ ത്തിയത്

ഇതേതുടർന്നുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരി ച്ചാണ് ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും റഷ്യൻ ബഹിരാകാശ ഏജൻസി മേധാവി ദിമിത്രി റോഗോസിനുമാണ് വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് റോക്കറ്റ് എൻജിനുകൾ ബഹിരാകാശ വാഹനങ്ങൾ വിക്ഷേപണ വാഹനങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താകുറിപ്പിൽ പറയുന്നു

വാഗാ അതിർത്തിയി ലാണ് ചർച്ച നടക്കുന്നത്

ചർച്ചയിൽ ഇടനാഴി സംബന്ധിച്ച വിവിധ നടപടിക്രമങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും വിഷയമാകും സീറോ പോയിന്റിലെ സംയോജനം സംബന്ധിച്ചും തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചും വിശദമായി ചർച്ചു ചെയ്യുമെന്നും ഓദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു യാത്രക്കാർക്കുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു

ഡോക്ടർ രോഗി അനുപാതം നിലനിർത്തുന്ന തിനും ഡോക്ടർമാരുടെ അമിത ജോലി ഭാരം കുറയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ തീരുമാനം ലോക്സഭയിൽ ആരോഗ്യ സഹമന്ത്രി അശ്ചിനികുമാർ ചൌബേ രേഖാമൂലം സമർപ്പിച്ച മറുപടി യിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിദൂര ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും അധികമായി അലവൻസുകൾ നല്കണമെന്ന് സംസ്ഥാനങ്ങളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ആശുപത്രികൾക്കും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്കും സുരക്ഷ യൊരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗവൺമെന്റ് ഒരു കമ്മറ്റിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ലോക്സഭയെ അറിയിച്ചു

ഇത്തരം പ്രവർത്തികൾക്കെതിരെ ദ്ദേശീയ തലത്തിൽ ദൃഢവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ന് നൽകുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി

കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയെ അമിക്കസ്ക്യൂറിയായി സുപ്രീംകോടതി ബഞ്ച് നിയമിച്ചു

മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് വലിയ തോതിൽ ദാരിദ്ര്യം കുറയുന്നതായി ഐക്യരാഷ്ട്ര സഭ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പോഷണം ശുചിത്വം തുടങ്ങിയവയിൽ രാജ്യം പുരോഗതി കൈവരിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ജനങ്ങളുടെ വരുമാനം ആരോഗ്യം ജോലിയുടെ ഗുണമേന്മ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ ദാരിദ്ര്യം സംബന്ധിച്ച പഠനം നടത്തിയിരുന്നു

ബ്രഹ്മപുത്ര നദി പ്രമ്പ്പോഴും കരകവിഞ്ഞൊഴുകുകയാ ണ് മുഖ്യമന്ത്രി സർബാന്ദി ക്രെസാനോവാൾ സ്ഥിതിഗതികൾ നിരീ ക്ഷിച്ച് രക്ഷാപ്രവർത്ത്നങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്ന് റവന്യൂ മന്ത്രി ഭാഭേഷ് കാളിറ്റ ആകാശവാണിയോട് പറഞ്ഞു സംസ്ഥാനത്തെ പല ദേശീയോദ്യാനങ്ങളെയും വന്യജീവി സങ്കേത ങ്ങളെയും വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്

കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ നൈപുണ്യ വികസനം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയവ ആരംഭിക്കുന്നതിന് ഇൻക്യുബേഷൻ സെന്റർ വഴിയൊരുക്കും കാർഷികാനുബന്ധ മേഖലയിൽ സ്റ്റാർട്ട് അപ്പ് സംസ്കാരം വളർത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര കൃഷി മന്ത്രാ ലയം അഗ്രി ഇൻക്യുബേഷൻ സെന്ററിന് തുടക്കം കുറിച്ചത്

സൂര്യപ്രകാശ് പറഞ്ഞു ലണ്ടനിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ സ്വതന്ത്രവും ഉത്തരവാദിത്വപൂർണ്ണവുമായ മാധ്യമ സമൂഹമാണുള്ളതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു മാസിക എഡിറ്ററെ അദ്ദേഹം അപലപിച്ചു

എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്

ലോക്സഭ സ്പീക്കർ ഓം ബിർല പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആരോഗ്യമന്ത്രി ഡോ ഹർഷ വർധൻ വിദേശകാര്യമന്ത്രി എസ്

ധനകാര്യം റിസ്ക് മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടായിരിക്കും ശ്രീമതി അൻഷുല കാന്ത് പ്രവർത്തിക്കുക

വ്യാഴാഴ്ച കൂടല്ലൂർ ജില്ലയിൽ നടന്ന സംഭവത്തിൽ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു

എം കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത വ്യക്തി സ്റ്റേഷൻ പരിസരത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത് ആറ് ആഴ്ചകുള്ളിൽ സംഭവത്തെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യവകാശ കമ്മീഷൻ തമിഴ്നാട് ഡി ജി

കമ്മറ്റിക്കുമുന്നിൽ ഹാജരാകാൻ ഭയമില്ലെന്നും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി